ത മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ഠൻ അന്തരിച്ചു ത തിരുവനന്തപുരത്തെ യു

ഇ കോൺസുലേറ്റ് അറ്റാഷെയ്ക്ക് ഗൺമാനെ നിയമിച്ചതിന് പിന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്തകൾ വിശദമായി കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി

പുതിയ ലാബുകൾ തുറക്കാനും നിലവിൽ പ്രവർത്തിക്കുന്നവയുടെ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് നിർദ്ദേശം ഹ്രസ്വ ദീർഘകാല പരിശോധനാ സൌകര്യം ഉൾപ്പെടുത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലെ ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭ്യമായ യന്ത്രസംവിധാനം താൽക്കാലികമായി ജില്ലാ ആശുപത്രികളോട് ചേർന്ന ലാബുകൾക്കായി പ്രയോജനപ്പെടുത്തണം റാപ്പിഡ് ആന്റിജൻ കിറ്റുകൾ കൂടുതലായി സമാഹരിക്കാനും നിർദ്ദേശമുണ്ട് ഓരോ സംസ്ഥാനത്തും കുറഞ്ഞത് അഞ്ച് ലാബുകളെ പരിശോധനാ ശൃംഖലയിൽ ഉൾപ്പെടുത്തുകയും വേണം രേര ഡൽഹി എയിംസ് ആശുപത്രിയിൽ കോവിഡിനെതിരെ മനുഷ്യരിലെ കോവാക്സിൻ പരീക്ഷണം മറ്റന്നാൾ ആരംഭിക്കുമെന്ന് മുഖ്യ ശാസ്ത്രജ്ഞൻ ഡോ

പരീക്ഷണത്തിന് സന്നദ്ധ പ്രവർത്തകരിൽനിന്ന് ആരംഭിച്ച രജിസ്ട്രേഷൻ വിജയകരമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു

രണ്ടാം ഘട്ടം ഒരു മാസം കഴിഞ്ഞ് നടത്തുമെന്നും ഡോ സഞ്ജയ് റായ് പറഞ്ഞു രുമ തിരുവനന്തപുരത്ത് കീം പരീക്ഷ എഴുതിയ രണ്ടു വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ പരീക്ഷ എഴുതിയവരുടെ പട്ടിക പ്രവേശന പരീക്ഷാ കമ്മീഷണർ ആരോഗ്യവകുപ്പിന് കൈമാറി

തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ പൊഴിയൂർ സ്വദേശിക്കും കരമനയിൽ പരീക്ഷ എഴുതിയ കരകുളം സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ലഭിച്ചത് കരകുളം സ്വദേശിക്ക് നേരത്തെ രോഗ ലക്ഷണം ഉണ്ടായിരുന്നതിനാൽ പ്രത്യേക മുറിയിലാണ് പരീക്ഷ എഴുതിയത്

എന്നാൽ കൂടെ പരീക്ഷ എഴുതിയവർക്ക് രോഗം പകരാൻ സാധ്യത കുറവാണെന്ന് ജില്ലാ സർവൈലൻസ് ഓഫീസർ ജോസ് ഡിക്രൂസ് പറഞ്ഞു രേര കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന ഒരാൾ മരിച്ചു

കോവിഡ് മൂലമാണോ മരണമെന്ന് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ കഴിയൂവെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ദേശ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നാളെ ചേരാനിരുന്ന ജനപ്രതിനിധികളുടെ യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി വിഡിയോ കോൺഫറൻസിംഗ് വഴി സംഘടിപ്പിക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്തീൻ വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും പങ്കെടുക്കും

ഓഫീസിലെ തിരക്ക് നിയന്ത്രിച്ചിരുന്ന ഒരു വൊളണ്ടിയർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി

നിലവിൽ വടകര മുൻസിപ്പാലിറ്റിയിലേയും എട്ട് ഗ്രാമപഞ്ചായത്തുകളിലേയും മുഴുവൻ വാർഡുകളും കണ്ടെയ്മെന്റ്സോണുകളായി

രേര വയനാട് ജില്ലയിൽ കോവിഡ് വ്യാപന സാധ്യത മുൻനിർത്തി പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളായ കോവിഡ് ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ സജ്ജീകരണം അന്തിമഘട്ടത്തിലെത്തി

ദേഴ കണ്ണൂർ ജില്ലയിലെ ആദ്യ കോവിഡ് ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പ്രവർത്തനം തുടങ്ങി

വാക്സിന്റെ അവസാന ഘട്ട പരീക്ഷണവും വിജയകരമാകുമെന്ന് അവർ വിശ്വാസം പ്രകടിപ്പിച്ചു രുഭ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാനസിക ആരോഗ്യത്തിനും ക്ഷേമത്തിനും പിന്തുണ നൽകുന്ന മനോദർപ്പൺ പദ്ധതിയ്ക്ക് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ ഇന്ന് തുടക്കം കുറിക്കും കോവിഡ് സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകാനും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരമൊരു പദ്ധതി ആവശ്യമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു

അസുഖ ബാധിതനായി കഴിഞ്ഞ മാസമാണ് ടണ്ഠനെ ലക്നൌവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

പിയും മന്ത്രിയുമായിരുന്നു സംസ്കാരം വൈകിട്ട് ലക്നൌവിൽ നടക്കും

രുമ ലാൽജി ടണ്ഠന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ പ്രകാശ് ജാവ്ദേക്കർ നിർമ്മലാ സീതാരാമൻ യു

രേര തിരുവനന്തപുരത്തെ യു

ഇ കോൺസുലേറ്റ് അറ്റാഷെയ്ക്ക് ഗൺമാനെ നിയമിച്ചതിന് പിന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയുടെ കീഴിലെ ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു

ഗൺമാനെ ഏർപ്പെടുത്താൻ കേന്ദ്രം ആവശ്യപ്പെട്ടെന്ന പരാമർശം വാസ്ത വിരുദ്ധമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജി വെച്ച് അന്വേഷണം നേരിടണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുകയാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ താക്കോൽദാനം നടത്തും പോത്തുകല്ല് ഫാമിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനാവും

ദേശ സ്വർണ വില വീണ്ടും വർധിച്ചു

എറണാകുളത്തെ ചെല്ലാനം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ചാവക്കാട് മലപ്പുറം പൊന്നാനി ആലപ്പുഴയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായത് ജില്ലയുടെ തീരദേശത്ത് കടൽക്ഷോഭം ആലപ്പുഴ അതിരൂക്ഷമാണ് ജില്ലയിൽ നിന്നും ആർ രവികുമാർ നൽകുന്ന റിപ്പോർട്ട്